മുൻമന്ത്രി കെ

മാണിക്കെതിരെയുള്ള ബാർ കോഴക്കേസിൽ ഗവൺമെന്റ് അനുമതിയോടെ തുടരന്വേഷണം നടത്താൻ വിജിലൻസിനോട് കോടതി

ആശങ്കയില്ല പുനരന്വേഷണ്ടം ഏത് ഏജൻസിക്കും നടത്താം ആതൃന്തികമായി ്സ്തൃം ജയിക്കുമെന്നും മാണി

പമ്പ നിലയ്ക്കൽ റൂട്ടിൽ കെ

വർദ്ധിപ്പിച്ച നിരക്കുകളിൽ മാറ്റമില്ലെന്ന് ഗതാഗതമന്ത്രി തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്

ഇന്ത്യ ആസ്ട്രേലിയ സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ കൊച്ചിയിൽ തുടങ്ങും

മാണിയ്ക്കെതിരായ ബാർ കോഴക്കേസിൽ ഗവൺമെന്റിന്റെ അനുമതിയോടെ തുടരന്വേഷണം നടത്താൻ വിജിലൻസിന് കോടതി നിർദ്ദേശം

മാണിയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വിജിലൻസ് സമർപ്പിച്ച മൂന്നാമത് തുടരന്വേഷണ റിപ്പോർട്ടാണ് കോടതി ഇന്ന് പരിഗണിച്ചത്

പൂട്ടിയ ബാറുകൾ തുറക്കാൻ ധനമന്ത്രിയായിരിക്കെ ശ്രീ

മാണി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിന് തെളിവുകളില്ലെന്ന വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളിയ കോടതി അന്വേഷണം പൂർണമല്ലെന്നും നിരീക്ഷിച്ചു

മാണി ഒരു കോടി ്രൂപ കോഴ വാങ്ങിയെന്നാണ് ആരോപണം

യു ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റുകളുടെ കാലത്ത് മൂന്ന് തവണ അന്വേഷിച്ച് തനിക്കെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയ

ബാറുകളുടെ കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ശ്രീ മാണി കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഏത് ഏജൻസിക്ക് വേണമെങ്കിലും കേസ് അന്വേഷിക്കാമെന്നും ആതൃന്തികമായി സത്യം ജയിക്കുകതന്നെ ചെയ്യുമെന്നും ശ്രീ മാണി അഭിപ്രായപ്പെട്ടു

വിജയരാഘവൻ ബാർ കോഴക്കേസിലെ വിജിലൻസ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കെ

മാണിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് എൽ

കൺവീനർ എം

കേസിൽ കോടതി നിർദ്ദേശിച്ചതുപോലെ ഗവൺമെന്റ് ഇടപെടണമെന്നും നീതിക്ക് മുൻഗണന ലഭിക്കണമെന്നും എൽ ഡി

മൂന്ന് തവണ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ മാണിച്ച കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരുന്നതായും പ്രതിപക്ഷനേതാവ് പ്രസ്താവനയിൽ പറഞ്ഞു

ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തുടരന്വേഷണത്തിന് അനുമതി നൽകുകയാണ് വേണ്ടത് കോടതിയിൽ പ്രോസിക്യൂഷൻ കൈക്കൊണ്ട നിലപാടുകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ശ്രീ അച്യുതാനന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു

വിശദമായ വാദത്തിനും ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് അറിയിക്കുന്നതിനുമായാണ് കേസ് മാറ്റിയത് നാളെ രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അന്വേഷണ സംഘം ബിഷപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന കന്യാസ്ത്രീകൾ പറഞ്ഞു അതിനിടെ കൊച്ചിയിൽ കന്യാസ്ത്രികൾ നടത്തിവരുന്ന നിരാഹാര സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നു

ഫണ്ട് ഉപയോഗിച്ച് കമ്പനി റിസോർട്ടിലേക്കുള്ള റോഡ് നിർമ്മിച്ചുവെന്നും ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ചൂണ്ടിക്കാട്ടി ആലപ്പുഴ കോട്ടയം വിജിലൻസ് കോടതിയെ സ്വദേശി സമീപിച്ചിരുന്നു

റെവന്യു കമ്മീഷണറും അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാണ് നിരീക്ഷണ വിഭാഗം ഭൂമി കൈയേറ്റം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാർ തഹസിൽദാർമാർ എന്നിവരിൽ നിന്ന് സെൽ റിപ്പോർട്ട് തേടും കൈയേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കുന്നതിന് ഇടപെടുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ മാർഗനിർദേശങ്ങൾ നൽകുകയും ചെയ്യും

ദുരിതാശ്ചാസത്തിന്റെ പേരിൽ ചൂഷണവും വ്യാപകമായ അഴിമതിയുമാണ് നടക്കുന്നതെന്നും ദൂരിതാശ്വാസ നിധിയിലെ തുക അനാവശ്യമായി ചിലവിടുന്നത് ഒഴിവാക്കാൻ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ മേൽനോട്ട സമിതിയുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു

ടി സി വർദ്ധിപ്പിച്ച നിരക്കുകളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ടി

അസിസ്റ്റന്റ് ഡയറക്ടർ സെന്തിൽ ദക്ഷിണ മേഖല ജോയിന്റ് ഡയറക്ടർ അശ്വിൻകുമാർ എന്നിവരാണ് പരിശോധനയ്ക്കെ ത്തിയത്

ഇതിന് പുറമേ ഓസ്ട്രേലിയൻ സംഘത്തിലെ സ്ത്രീ സാന്നിധൃം അന്താരാഷ്ട്ര തലത്തിൽ ഈ ടൂർണമെന്റിനെ വേറിട്ട് നിർത്തുന്നു മത്സരത്തിന് മുന്നോടിയായി ് ഇരു ടീമിലേയും അംഗങ്ങൾ ഇന്ന് പരിശീലനം നടത്തി ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര ബ്ലൈൻഡ് ഫുട്ബോൾ പരമ്പരയിൽ വിജയം നേടാനാകുമെന്ന ഉറച്ച ആത്മവിശ്വാസവുമായാണ് കങ്കാരുപട കൊച്ചിയിലെത്തിയിരിക്കുന്നത്

കേരളാ പോലീസിൽ ്ആദ്യമായിട്ടാണ് ഇത്രയും അധികം കായിക താരങ്ങളെ ഒരുമിച്ച് നിയമിക്കുന്നത് ഡയറ്റ് പ്ലാൻ സംസ്ഥാനത്തെ ഭാരതീയ ചികിത്സാ വിഭാഗത്തിന് കീഴിലുള്ള ആയുർവേദ ആശുപത്രികളിലെ കിടപ്പ് രോഗികളുടെ ഭക്ഷണക്രമം പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി കെ

മത്സ്യമേഖലയിലെ നിയമപരിപാലനം നയരൂപീകരണം തുടങ്ങിയ കാരൃങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഗ്രാമ ജില്ല സംസ്ഥാന തലങ്ങളിലാണ് സമിതികൾ രൂപീകരിക്കുക

വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇക്കോ ഡവലപ്പ്മെന്റ് കമ്മിറ്റിയും ഉദ്യോഗസ്ഥരും പത്തുദിവസം രാപകൽ അധ്വാനിച്ചാണ് വനത്തിലെ തടാകത്തിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചെളിയും മറ്റും നീക്കം ചെയ്തത് ട്ടടട മിനിമം വേജസ് സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന വിമുക്തഭടൻമാരായ സെക്യൂരിറ്റി ജീവനക്കാർക്ക് മിനിമം വേജസ് നിയമാനുസൃതമുള്ള ശമ്പളം നൽകാൻ കോർപ്പറേഷൻ ബാധ്യസ്ഥമാണെന്ന് സംസ്ഥാന മനുഷ്യാവ കാശ ക്മ്മീഷൻ ഉത്തരവായി